പിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും

വോട്ടർ പട്ടികയിൽ പുതുതായി പ്പേര് ചേർക്കുന്നതിനും തിരിച്ചറിയൽ കാർഡിൽ മാറ്റും വരുത്തുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ംവിധാനം ഏർപ്പെടുത്തി

ഡിവിഷൻ പദവി നൽകി

ബൾഗേറിയയിൽ നടക്കുന്ന സോഫിയ ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ദിവിജ് ഷരൺ സഖ്യം സെമി ഫൈനലിൽ കടന്നു

അസം അരുണാചൽപ്രദേശ് ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി ഇന്നലെ വൈകിട്ട് ഗുവാഹത്തിയിൽ എത്തി

ഹെല്ലോങിയിൽ തന്ത്രപ്രധാനമായ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് അദ്ദേഹം തറക്കല്ലിടും എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം ഉറപ്പാക്കുന്ന തവാങ് ഭൂഗർഭപാതയ്ക്കും അദ്ദേഹം ശിലാ സ്ഥാപനം നിർവ്വഹിക്കും അരുണാചൽ പ്രദേശിന്റെ പ്രാദേശിക ദൂരദർശൻ ചാനലായ ഡി

ഇറ്റാ നഗറിൽ നിന്ന് ഗുവാഹത്തിയിലേയ്ക്ക് തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി ബ്രഹ്മപുത്ര നദിക്കു കുറുകെയുള്ള ആറുവരി പാതയ്ക്ക് തറക്കല്ലിടും

ആർ എൽ ബയോ റിഫൈനറി ബറൌനി ഗുവാഹത്തി ഗ്യാസ് പൈപ്പ് ലൈൻ വടക്കു കിഴക്കൻ വാതകഗ്രിഡ് പദ്ധതികൾക്കും തുടക്കം കുറിക്കും ചാങ്സാരിയിൽ പൊതുയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും

ത്രിപുരയെ തെക്ക് കിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റെയിൽവേ പാതയാണിത്

വോട്ടർ വെരിഫിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ പ്രോഗ്രാം വി

എന്ന പേരിലാണ് സൌകര്യം ഒരുക്കിയിട്ടുള്ളത് ഇതിനായി രാജ്യത്തെ എല്ലാ ജില്ലകളിലും കേന്ദ്രങ്ങൾ തുടങ്ങും

ലാന്റ് റവന്യൂ നിയമത്തിലെ സെക്ഷൻ അഞ്ച് അനുസരിച്ച് ലെഡാക്ക് സംസ്ഥാനത്തെ മൂന്നാമത്തെ ഡിവിഷനായി മാറി ഈ മാസം മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലേ സന്ദർശിച്ചതിനു പിന്നാലെയാണ് ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ലെഡാക്കിലെ ജനങ്ങൾക്ക് നിരവധി സമ്മാനങ്ങൾ കൊണ്ടു വന്നി ട്ടുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു

രണ്ടുമാസത്തോളമായി തൊഴിലാളികൾ ഖനിയിൽ കുടുങ്ങി കിടക്കുന്നതിന് അനധികൃത ഖനനം നടത്തിയ ഉടമ ഉത്തരവാദിയാ ണെന്ന് കാട്ടിയാണ് കോടതി നോട്ടീസ്ട് അയച്ചത് മേഖലയിലുള്ള അനധികൃത ഖനനം സംബന്ധിച്ച് വിശ്ദാർശങ്ങൾ നല്കാൻ മേഘാലയ ഗവൺമെന്റിനും ക്ടോൾ ഇന്ത്യാ ലിമിറ്റഡിനും പരമോന്നത കോടതി നിർദ്ദേശ്രം നൽകി

ഇന്ത്യയുടെ കിഴ ക്കൻ മേഖലയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ കാർഷിക മേളയാണിത്

ഇതു സംബന്ധിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ ജസ്റ്റിസ് വി

റാവു എന്നിവർ ഉൾപ്പെടുന്ന ബഞ്ച് ധനകാര്യ മന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും നോട്ടീസ് നൽകി സ്വകാര്യതയെ ബാധിക്കുന്ന ഈ നീക്കം തടയുന്നതിന് നടപടി സ്വീകരിക്കാൻ റിസർവ് ബാങ്കിന് നിർദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം

ടെക്സ്റ്റൈയിൽസ് മന്ത്രി സ്മൃതി ഇറാനി ഉസമ്മേളനത്തിൽ അദ്ധ്യക്ഷയാകും സെറികൾച്ചർ മേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെ മേളയിൽ ആദരിക്കും

ബജറ്റ് നിർദ്ദേശങ്ങളെ ശക്തമായി എതിർത്ത് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തുവന്നു കർണ്ണാടകയിൽ അടുത്ത് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എച്ച്

യദൂരപ്പയുടെ നേതൃത്വത്തിലുള്ള ബി ജെ

അടുത്ത നാല് മാസത്തേയ്ക്കുള്ള ബജറ്റ് പാസാക്കി ഒഡീഷ നിയമസഭ പിരിഞ്ഞു

കാലാവധി പൂർത്തിയാക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ അവസാന സമ്മേളനമാണ് ചേർന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

തിരുവനന്തപുരം തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കിൽ ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും നിപ പോലുള്ള വൈറസുകളുടെ സ്ഥിരീകരണത്തിനും പുതിയ വൈറസുകൾ തിരിച്ചറിഞ്ഞ് കാലവിളംബം കൂടാതെ പ്രതിവിധി സ്വീകരിക്കാനും ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർഥ്യമാക്കുന്നതോടെ കഴിയും

വിവിധ വൈറസുകൾക്കുള്ള പ്രതിരോധ മരുന്ന് നിർമാണത്തിനും ആധുനിക ഗവേഷണത്തിനും സൌകര്യമുണ്ടാകും

പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും മാനസിക സംഘർഷം ലഘൂകരിക്കുകയാണ് ലക്ഷ്യം കേരള സർവ്വകലാശാല തുടർ വിദ്യാഭ്യാസ വ്യാപന കേന്ദ്രത്തിന്റെ അക്കാദമിക സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഓരോ ജില്ലയിലെയും തിരഞ്ഞെടുത്ത കേന്ദ്രത്തിൽ ഇന്നു നാളെയും ക്ലാസ് നടക്കും

തീപിടുത്ത്തിന്റെ കാരണം അറിവായിട്ടില്ല്

ഇന്തോനേഷ്യൻ ചൈനീസ് സഖ്യത്തെയാണ് ഇനി ഇവർക്ക് നേരിടേണ്ടത്

ടെന്നീസ് സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരങ്ങളായ പ്രജ്നേഷ് ഗുണേശ്വരനും ശശികുമാർ മുകുന്തും കളിക്കും ഇന്നലെ നടന്ന കാർട്ടർ ഫൈനലിൽ പ്രജ്നേഷ് ആസ്ട്രേലിയയുടെ ജെയിംസ് ഡക്ക്വർത്തിനെപരാജയ പ്പെടുത്തി

രണ്ടു ദിവസത്തെ ഉച്ചകോടി ഇന്നലെ സമാപിച്ചു

ന്യൂഡൽഹിയിൽ നടന്ന അഞ്ചാമത് ഇന്ത്യ ബംഗ്ലാദേശ് കൂടിയാലോചന സമിതിയോഗത്തിന് ശേഷം ഇരുരാജ്യ നേതാക്കളും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്

ലോകം നേരിടുന്ന ആണവ വെല്ലുവിളി സംബന്ധിച്ച് അന്താരാഷ്ട്ര റെഡ് ക്രോസ് സൊസൈറ്റി പ്രചാരണം ആരംഭിച്ചു ആണവനിരായുധീകരണത്തിൽ നിന്നും ചില്ലൂരാജ്യങ്ങൾ പിന്നോട്ടു പോകാൻ ശ്രമിക്കുകയാണെന്നും മെഡ്ട്ക്രോസ് ജനീവയിൽ പുറത്തിറക്കിയ സംയുക്തപ്രസ്ത്യാവൻയിൽ പറഞ്ഞു